തമിഴ്നാട്ടിലെ മാമല്ലപുരം ഒരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പങ്കെടുക്കും

കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് തുടങ്ങി

ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഊർജ്ജിതം

ജസ്റ്റിസ് എസ് മണികുമാർ ചുമതലയേറ്റു

കൂടുതൽ വിവരങ്ങളുമായി അർച്ചന സതീഷ്

മാമല്ലപുരത്ത് നടക്കുന്ന രണ്ടാമത് ഇന്ത്യ ചൈന അനൌപചാരിക ഉച്ചുകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ചൈനീസ് പ്രസിഡന്റ് പങ്കെടുക്കും ഇരുരാജ്യങ്ങളും പുരാതന കാലം മുതൽ സാംസ്കാരിക പങ്കിടുന്ന വ്യാപാര ബന്ധങ്ങൾ വെളിപ്പെടുത്തുന്നതിനും പ്പൈവിദ്ധ്യം എടുത്തു കാട്ടുന്നതിനുമായാണ് ഉച്ചകോടിയ്ക്കായി പൈതൃക നഗരമായ മാമല്ലപുരം തെരഞ്ഞെടുത്തത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനായി ഇന്ന് അത്താഴവിരുന്ന് ഒരുക്കുന്നുണ്ട്

കോഴിക്കോട് നിന്ന് ആകാശവാണി പ്രതിനിധി നസീർ ബാബു

ഫ്ളാറ്റ് പൊളിക്കുന്നതിന് ചുമതലയുള്ള ഫോർട്ട് കൊച്ചി സബ് കളക്ടർ സ്നേഹിൽകുമാർ സിങ്ങ് ഇന്നലെ സർവാതേയുമായി ചർച്ച നടത്തിയിരുന്നു

എത്രയും വേഗം പാലങ്ങൾ പൂർത്തീകരിക്കുവാൻ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബന്ധപ്പെട്ടവർക്ക് നിർദേശം നൽകി

തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ എൽ ഡി എഫ്

ഡി എഫ് സ്ഥാനാർത്ഥിക്കു വേണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു

ഡി എ സ്ഥാനാർത്ഥിയുടെ വാഹന പര്യടന പ്രചാരണം നാളെ ആരംഭിക്കും

ജെ

ദേശീയ നിർവാഹകസമിതി അംഗം പി

കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും

മൃഖ്ലയില്ല മുഴുവൻ ബോട്ടുകളും നാളെ മുതൽ പുതിയ ഹാർബറിലെത്താൻ തീരുമാനിച്ചിട്ടുണ്ട്

നിതി ആയോഗിന്റെ നിർദേശപ്രകാരമാണ് റെയിൽവെ ബോർഡ് ഉന്നതാധികാര സേന രൂപീകരിച്ചത്

ഇതോടെ പ്രതികൂല കാലാവസ്ഥയിലും വിമാനം റൺവേയിൽ സുരക്ഷിതമായി ഇറക്കാം റൺവേയുടെ മധ്യരേഖാനിർണയം ദിശാനിർണയം വാർത്താവിനിമയം തുടങ്ങിയവ മെച്ചപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഗ്ലോബൽ നാവിഗേഷൻ വഴി സാധ്യമാകും ഒളിമ്പിക്സ് കായികരംഗത്ത് കൂടി മികവ് തെളിയിക്കുന്നതോടെ രാജ്യം ആഗോള ശക്തിയായി മാറുമെന്ന് കേന്ദ്ര കാർയിക മന്ത്രി കിരൺ റിജിജു

രാജ്യത്ത് കായിക സംസ്ക്കാരം വള്ർത്തീയെടുക്കാൻ സ്വകാര്യമേഖലയും വ്യവസായ സമൂഹവും മുന്നോട്ടുവരണമെന്ന് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു

സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ച ജസ്റ്റിസ് ഋഷികേശ് റോയി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനം

എൻ ആസ്ഥാനത്തു ചേർന്ന സമ്മേളനത്തിലാണ് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ പ്രമേയം അംഗീകരിച്ചത്

തൈയ്ക്കാട് മോഡൽ എൽ പി സ്കൂളിലെയും സംസ്ഥാന ശിശുക്ഷേമസമിതി ആസ്ഥാനത്തെയും എട്ടിലധികം വേദികളിലായാണ് മത്സരം നടക്കുക ഇടുക്കി ഇൻട്രോ ഇക്കഴിഞ്ഞ ദിവസം മലയിടിച്ചിലിൽ രണ്ടുപേർ മരിക്കാനിടയായ കൊച്ചി ധനുഷ്ക്കോടി ദേശീയപാതയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന ഭാഗത്ത് ഇന്നും മലയിടിച്ചിലുണ്ടായി

ഓപ്പണർ മായങ്ക് അഗർവാളിന് പുറമേ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും സെഞ്ചറി നേടി

മായങ്ക് അഗർവാൾ രോഹിത് ശർമ്മ ചേതേശ്വർ പൂജാര എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് ഫുട്ബോൾ കിക്കോഫ് പെൺകുട്ടികൾക്കായുള്ള ഫുട്ബോൾ പരിശീലന പദ്ധതിയായ കിക്കോഫിന് കണ്ണൂർ ജില്ലയിൽ പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരഞ്ഞെടുത്തു

വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു

സാക്സോഫോണിനെ കർണ്ണാടക സംഗീതവുമായി ബന്ധിപ്പിച്ച കദ്രി ഗോപിനാഥ് ലോകപ്രശസ്തമായ നിരവധി രാജ്യാന്തര സംഗീതോത്സവങ്ങളിൽ പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട്